പ്രധാനമന്ത്രി നരേന്ദ്രമോദി

നിരോധിച്ചു

ആഞ്ഞടിക്കാൻ സാധ്യത

അഹമ്മദ് പട്ടേൽ അന്തരിച്ചു

ഐ

വാക്സിന്റെ പ്രയോഗം സുഗമവും സുസ്ഥിരവു മാണെന്ന് ഉറപ്പാക്കാൻ എല്ലാ തലങ്ങളിലുമുള്ള സർക്കാരുകൾ യോജിച്ചു പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു വിനോദ്

വാക്സിൻ വികസനവുമായി ബന്ധപ്പെട്ട് ആഗോള പ്പിത്ത്രണക്കാർ മറ്റ് രാജ്യങ്ങളിലെ സർക്കാരുകൾ ബഹുര്യ്ക്ഷ്ട് സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര കമ്പനികൾ എന്നിവരുമായും ഇന്ത്യൻ നിർമ്മാതാക്കളുമായും സർക്കാർ ്ഷ്യസ്പെടുന്നുണ്ട്

ഹരിയാന ഡൽഹി ഛത്തീസ്ഗഢ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗുജറാത്ത് പശ്ചിമ ബംഗാൾ എന്നിവയാണ് മറ്റ് സംസ്ഥാനങ്ങൾ

അധിക സംഭരണത്തിന്റെ ആവശ്യകത സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു മെച്ചപ്പെട്ട ഫലങ്ങൾ ഉറപ്പാക്കാൻ സംസ്ഥാനതലത്തിൽ നിർവ്വഹണത്തിനും നിരീക്ഷണത്തിനും സംവിധാനം ഉറപ്പാക്കണമെന്ന് ശ്രീ മോദി മുഖ്യമന്ത്രി മാരോട് ആവശ്യപ്പെട്ടു

പൊതുസമൂഹം എൻ സി സി എൻ എസ് എസ് വിദ്യാർത്ഥികൾ മാധ്യമങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും സ്വീകരിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിച്ച് ഇത്തരം സാമൂഹിക വിരുദ്ധ ശ്രമങ്ങളെ നേരിടേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സി

എല്ലാവർക്കും താങ്ങാവുന്നതും ഫലപ്രദവുമായ വാക്സിൻ എത്രയും വേഗം പുറത്തിറക്കാൻ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശ്രമിക്കുകയാണെന്നും ൃശ്രീ

പരിപാടിയിൽ ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കിയ പ്രത്യേക സ്മാരക തപാൽ സ്റ്റാമ്പും ് പ്രത്യേക കവറും അദ്ദേഹം പ്രകാശനം ചെയ്യും

നിയമനിർമ്മാണ കാര്യനിർവ്വഹണ നീതിന്യായ വ്യവസ്ഥകളുടെ സന്തുലിത സഹകരണം ഊർജ്ജസ്വലമായ ജനാധിപത്യത്തിലേക്കുള്ള താക്കോൽ എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് വർഷത്തെ സമ്മേളനം

ഭരണഘടനാ ദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യും

രാജ്യത്തിന്റെ അഖണ്ഡതയേയും ദേശ സുരക്ഷയെയും ക്രമസമാധാനത്തെയും ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്

ടി മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു

ഭക്ഷണശാലകളും വഴിയോര കച്ചവട കേന്ദ്രങ്ങളും കോവിഡ് തരംഗത്തിന്റെ കേന്ദ്രങ്ങളായി മാറാനുള്ള സാധ്യതകൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന സാഹചരൃത്തിൽ ഇവിടങ്ങളിൽ ജനങ്ങൾ കൂട്ടം കൂടരുതെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു

ഐക്യരാഷ്ട്ര സംഘടന സ്ട് ഘട്ടിപ്പിച്ച യോഗത്തിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂട്ടു സ്്ബന്ധിക്കവേ വിദേശകാര്യ മന്ത്രി എസ്

ഇന്ന് വൈകുന്നേരത്തോടെ നിവർ കാരക്കലിനും മാമല്ലാപുരത്തിനും ഇടയിൽ തമിഴ്നാട് പുതുച്ചേരി തീരങ്ങൾ കടക്കാനിടയുണ്ട്

ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്

എൻ ഡി എയ്ക്കു വേണ്ടി മുതിർന്ന ബി ജെ പി നേതാവ് വിജയ് സിൻഹയും മഹാസഖ്യത്തിനു വേണ്ടി ആർ ജെ ഡി നേതാവ് അവധ് ബിഹാരി ചൌധരിയുമാണ് സ്ഥാനാർത്ഥികൾ

ഡി

കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള സ്വയം ഭരണ ഏജൻസിയായ വിജ്ഞാന പ്രസാർ ശാസ്ത്ര വിഷയങ്ങളെ കൂടുതൽ ജനപ്രിയമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നാല് ദിവസത്തെ ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത് പ്രൊഫഷണലുകൾ അമേചർ വിദ്യാർത്ഥി ചലച്ചിത്ര പ്രവർത്തകർ എന്നിവർ വിവിധ വിഷയങ്ങളെ ആധാരമാക്കി നിർമ്മിച്ച ശാസ്ത്ര സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിന് മേളയിൽ അവസരം ലഭിക്കുന്നു

ശാസ്ത്ര സമൂഹം വാക്സിൻ വികസനത്തിനായി പുതിയ മാതൃക കൊണ്ടുവരണമെന്നും അന്താരാഷ്ട്ര സമൂഹം അത് ലഭ്യമാക്കാനായി അത് പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു